ഡി

ജെ പി ജയിക്കാതിരിക്കേണ്ടത് ഇടതുപ ക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് സി

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊ ട്ടിനായി മുന്നണികളുടെയും പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ ഇന്നും നാളെയുമായി സംസ്ഥാനത്തെത്തും വയനാട്ടിലെ പ്രചാരണത്തിന് എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്നെത്തും രാവിലെ പത്തിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങുന്ന പ്രിയങ്ക മാനന്തവാടിയി ലേക്ക് പോകും പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിലും നിലമ്പൂരിലെയും അരീക്കോട്ടെയും പൊതുയോഗങ്ങളിലും പ്രിയങ്ക പങ്കെടുക്കും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നാളെയെത്തും രാവിലെ ബത്തേരി സെന്റ് മേരീസ് കോളജ് ഗ്രൌണ്ടിലെത്തുന്ന അവർ ഗാന്ധി ജംഗ്ഷനിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തശേഷം ബത്തേ രിയിലെ റോഡ്ഷോയിലും പങ്കെടുക്കും

ഡി

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് പത്തനംതിട്ട യിലും ആലപ്പുഴയിലുമെത്തും പ്രമാടം രാജീവ്ഗാന്ധി സ്റ്റേഡിയത്തിൽ ഹെലി കോപ്ടറിൽ ഇറങ്ങുന്ന അദ്ദേഹം റോഡ് മാർഗമാണ് പത്തനംതിട്ടയിലെത്തു ന്നത് റോഡ്ഷോയിലും പൊതുയോഗത്തിലും പങ്കെടുത്തശേഷം അമിത്ഷാ ആലപ്പുഴയിലേക്ക് പോകും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കണ്ണൂരിൽ എൽ ഡി എഫ് റാലിയിൽ പ്രസംഗിക്കും മുഖ്യ മന്ത്രി പിണറായി വിജയനും കണ്ണൂരിൽ എൽ ഡി എഫ് പ്രചാരണത്തി നെത്തും രുട്ടിട്ട്ട്ട്ട്ട്ട്ട ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടന്ന ആദായനികുതി റെയ്ഡു കൾ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമല്ലെന്നും നിയമപരമായ നടപടികൾ മാത്രമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്തമാക്കി ഇവരിൽനിന്ന് കണ്ടെടുത്ത കണക്കിൽപ്പെടാത്ത പണവും രേഖകളും അഴിമതിയുടെ പ്രക ടമായ തെളിവാണെന്നും പ്രധാനമന്ത്രി സ്വകാര്യ ന്യൂസ് ചാനൽ അഭിമുഖ ത്തിൽ പറഞ്ഞു രദേഷ്ടെടു രാജ്യത്തെ ചരക്ക് സേവന നികുതി സമ്പ്രദായം വ്യാപാര മേഖലയെ കൂടുതൽ സുതാര്യമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെ ട്ടു സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം ഇതിലൂടെ ഒന്നര ഇരട്ടിയോളം വർദ്ധിച്ചെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു എന്നാൽ കേന്ദ്രഗ വൺമെന്റ് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ അവഗണിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ സാമ്പത്തിക മേഖലയിൽ വൻ ദുരന്തമുണ്ടാ യതായി രാഹുൽ കർണാടകയിലെ റായ്ചൂരിൽ വിലയിരുത്തി

ഡി എ ഭരണത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ രൂപംകൊണ്ട പ്രാദേശിക സഖ്യങ്ങൾ വിജയത്തിലെത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു മോദി ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞതായും കോൺഗ്രസ് നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു കർണാ ടകയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽഗാന്ധി

ജെ പി വർഗീയ ധ്രുവീകരണം നടപ്പാക്കിയാണ് പ്രചാ രണം നടത്തുന്നതെന്ന് എ

സി ജനറൽ സെക്രട്ടറി ഗുലാംനബി ആസാദ് കുറ്റപ്പെടുത്തി വയനാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിക ളിൽ സംസാരിക്കുകയായിരുന്നു ഗുലാംനബി ആസാദ്

ജെ പി ജയിക്കരുത് എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രധാന ഉത്തരാവാദിത്വമാണെന്ന് സി

ഐ

കേരളത്തിലെ പ്ര ധാന പോരാട്ടം കോൺഗ്രസും ബി

പിയും തമ്മിലാണെന്ന് പറഞ്ഞ എ കെ ആന്റണി ബി

പിമാർ മുമ്പ് കോൺഗ്രസ് നേതാക്കളായി രുന്നുവെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു യെച്ചൂരി ദർശ്ശക്കു നിയമവാഴ്ച നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ക്രിമിന ലുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട് പറഞ്ഞു് സഹിഷ്ണുതക്കും സഹകര ണത്തിനും വിരുദ്ധമായ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവന്നത് ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

ഡി എഫിന്റെ തെരഞ്ഞെ ടുപ്പ് റാലി കാസർകോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ

ജെ പി ഗവൺമെന്റ് കവർന്നെടുത്തതായി സി

എം പോളിറ്റ്ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഹരിപ്പാട് പറഞ്ഞു നല്ലദിനങ്ങൾ വന്നത് അതിസമ്പന്നർക്ക് മാത്രമാണെന്നും രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടു

ജെ പിയും കോൺഗ്രസും വർഗീയതയുടെ വക്താക്കളാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുന്നത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാനാണെന്നും സി

എം പോളി റ്റ്ബ്യൂറോ അംഗം സുഭാഷിണി അലി കുറ്റപ്പെടുത്തി പാലക്കാട് തൃക്കടീരി യിൽ എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഭാഷിണി അലി

അഴിമതിയാണ് കോൺഗ്രസിന്റെ സംസ്കാരമെന്നും ഡോക്ടർ മഹേഷ് ശർമ്മ അഭിപ്രായ പ്പെട്ടു

എ സ്ഥാനാർത്ഥിക്കുനേരെ വണ്ടൂർ കാളികാവിൽ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വയനാട് കോഴിക്കോട് മണ്ഡ ലങ്ങളിൽ എൻ ഡി

ആക്രമണം നടത്തിയ കോൺഗ്രസിനും മുസ്ലിംലീഗിനുമെതിരെ നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു

പി ഏത് സമുദായു താല്പര്യമാണ് സംര ക്ഷിക്കുന്നതെന്ന് സി

എം പോളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ചോദിച്ചു ഇടതുപക്ഷം മാത്രമാണ് ബില്ലിനെ ശക്തമായി എതിർത്തതെന്ന് അവർ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞു പദ്രവ്ഷ്ടങ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് സ്വീപ്പ് വിഭാഗത്തിന്റെ പ്രവർത്തന സമാ പന മെഗാഷോ ഇന്ന് വൈകീട്ട് തൊടുപുഴയിൽ ചലച്ചിത്ര നടൻ അബു സലിം ഉദ്ഘാടനം ചെയ്യും എന്റെ വോട്ട് എന്റെ അവകാശം എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്

ചിദാനന്ദപുരിക്കെതിരെ സി

എം നേതാ ക്കൾ നടത്തിയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചാണ് നാമജപയജ്ഞം രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ ജില്ലയിലെ അതിർത്തി വനമേഖലയിൽ മാവോയിസ്റ്റ് സംഘം താവളമാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് തണ്ടർബോൾട്ട് തെരച്ചിൽ ശക്തമാക്കി കൊട്ടിയൂർ അമ്പായത്തോട് മേഖലയിൽ എട്ടംഗ മാവോവാദി സംഘം താവളമാക്കിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു

കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യാ സന്ദർശനത്തി നെത്തിയ സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രിയു മായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീർത്ഥാടകരുടെ എണ്ണം രണ്ടുലക്ഷമായി വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പുനൽകിയിരുന്നു ദർവ്വട്ടെഴ യുദ്ധകലുഷിതമായ ലിബിയയിൽ നിന്ന് എത്രയൂംവേഗം ഒഴിഞ്ഞു പോകാൻ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യൻ പൌരന്മാരോട് ആവ ശൃപ്പെട്ടു ഇപ്പോൾ രക്ഷപ്പെടാനായില്ലെങ്കിൽ ഗവൺമെന്റിന് പിന്നീട് ഇന്ത്യ ക്കാരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന് അവർ ടിറ്ററിൽ കുറിച്ചു

ദർവ്വെട്ടറ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് രണ്ടര കിലോയിലേറെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു മസ്ക്കറ്റിൽ നിന്നും വന്ന യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് കോഴിക്കോട് കല്ലാച്ചി സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുത്തു

പിടിയിലായ കളമശേരി സ്വദേശി പ്രബോധിൽ നിന്ന് ഹാഷിഷ് ഓയിലും എൽ

ഡി സ്റ്റാമ്പുകളും കണ്ടെടുത്തു രുട്ട്ട്ട്ട്ട്ട്ട്ട അട്ടപ്പാടി ആദിവാസി മേഖലയിലെ കോളനികളിൽ കുടിവെള്ള വിത ട രണം സുഗമമാക്കാൻ നടപടിയെടുത്തതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു അഗളി പുതൂർ പഞ്ചായത്തുകളിലെ നരസിമുക്ക് കൊല്ലംകടവ് കണ്ടിയൂർ കൊട്ടമേട് സ്വർണഗദ കോളനികളിലെ ജലക്ഷാമം ഉദ്യോഗസ്ഥർ വിലയി രുത്തി രുട്ട്ട്ട്ട്ട്ട്ട പാലക്കാട് ജില്ലയിൽ ശക്തമായ മിന്നലോടെ വേനൽമഴക്ക് ചൊവ്വാഴ്ച വരെ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തുടർച്ചയായി രണ്ടുദിവസം മഴ ലഭിച്ചതോടെ ജില്ല യിലെ കടുത്ത ചൂടിന് നേരിയ ആശ്വാസമായി

എൽ ക്രിക്കറ്റിൽ ഇന്നലെ കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പത്ത് റൺസിന് തോൽപ്പിച്ചു

രാത്രി ഡൽഹി ക്യാപ്പിറ്റൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബുമായും ഏറ്റു മുട്ടും

എണ്ണൂറ് ടണ്ണോളം നെല്ലാണ് മഴയിൽ കുതിർന്ന് നശിച്ചതെന്ന് കർഷകർ പറ ഞ്ഞു